ലോക്ക്ഡൌൺ കാലത്ത് അത്യാവശ്യൂ യ്ാത്രക്കൾക്കുള്ള ഓൺലൈൻ പാസിന് അപേക്ഷകരുടെ ്തള്ളിക്കയറ്റം എല്ലാവർക്കും അനുമതി നൽക്കാന്റാക്കില്ലെന്നും സൌകര്യം ദുരുപയോഗപ്പെടുത്തരുതെന്നുും പോലീസ്

കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് ഇത്

അത്യാവശ്യ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളു

വോയിസ് അവശ്യ സർവ്വീസ് വിഭാഗത്തിൽപ്പെട്ടതെങ്കിലും ഓഫീസ് തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവർക്കും വീട്ടുജോലിക്കാർ തൊഴിലാളികൾ കൂലിപ്പണിക്കാർ ഹ്യോട്ട് ന്ന്ഴ്സുമാർ എന്നിങ്ങനെ സ്വന്തമായി ഔദ്യോഗിക തിരിച്ചറിയിൽ് കാർഡ് ഇല്ലാത്തവർക്കും ഈ സംവിധാനം അത്യാവശൃഘട്ടങ്ങളിൽ ജില്ലൂർപിട്ട് യാത്ര ചെയ്യുന്നതിനും ഇ പാസ് ആവശ്യമാണ് അടുത്ത് ബ്ന്ധുവിന്റെ മരണം വിവാഹം വളരെ അടൂത്ത ബന്ധൂവായ രോഗിയെ സന്ദർശിക്കൽ ഒരു രോഗിയെ ചികിൽസാ ആവശൃത്തിനായി മറ്റൊരിടത്തേയ്ക്ക് കൊണ്ടുപോകൽ മുതലായ കാര്യങ്ങൾക്ക് മാത്രമേ ജില്ല വിട്ട് യാത്ര അനുവദിക്കൂ ഇ പാസ് ഉപയോഗിച്ച് യാത്രചെയ്യുമ്പോൾ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ കൂടി കരുതണം വാക്സിനേഷൻ എടുക്കാൻ പോകുന്നവർ വളരെ അത്യാവശൃത്തിന് വീടിന് സമീപത്തുളള കടകളിൽ പോകുന്നവർ എന്നിവർ ഓൺലൈൻ പാസിന് അപേക്ഷിക്കേണ്ടതില്ല

ഇതിന്റെ മാതൃകയും ഇതേ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഇത് ഡൌൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പൂരിപ്പിക്കുകയോ അതേ മാതൃകയിൽ വെളളക്കടലാസിൽ തയ്യാറാക്കുകയോ ചെയ്യാം

ജില്ലയിലെ അഥിതിതൊഴിലാളികൾക്ക് സപ്ലൈകോ വഴി ഭക്ഷ്യ കിറ്റ് ഉടൻ വിതരണം ചെയ്യുമെന്ന് കലക്ടർ അറിയിച്ചു

യു വെന്റിലേറ്റർ സൌകര്യങ്ങൾ നീക്കിവെക്കണമെന്ന് ജില്ലാ ദൂരന്തനിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ നിർദ്ദേശം നൽകി

അതിഥി തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ രൂപീകരിച്ച ജില്ലാതല മോണിറ്ററിംഗ് കമ്മറ്റിയുടെ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം

എറണാകുളം തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

ക്കോപിഡിന്റെ രണ്ടാം തരംഗത്തെ നേരിടുന്നതിനായി നട്ടുന്നു വരുന്ന സേവ് കാമ്പയിനിന്റെ തുടർച്ചയായാണ് ഇത് നടപ്പിലാക്കുന്നത്

ലോക്ഡൌൺ കാലയള്ളവിലും കെ എസ് ഇ ബിയുടെ ആസ്ഥാനമായ വൈദ്യുതി ഭവനിലെ കാൾ സെന്റർ മുഴുവൻ സമയവും പ്രവർത്തിക്കും

കോവിഡ് ബാധിതനായി എറണാകുളത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു

ലോക്ക് ഡൌൺ മൂലം കോർപ്പറേഷൻ പരിധിയിൽ അലഞ്ഞുതിരിയുന്നവർക്ക് തൃശൂർ കോർപ്പറേഷനും ആക്ട്സും പോലീസും സംയുക്തമായാണ് ഭക്ഷണം എത്തിക്കുന്നത്

കൂടാളി യു പി സ് മട്ടന്നൂർ വയോജന വിശ്രമ കേന്ദ്രം പേരാവൂർ കുൾ താലൂക്കാശുപത്രി തളിപ്പറമ്പ് ഐ

എ ഹാൾ കൊളശ്ശേരി കളരിമുക്ക് വനിതാ സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിൽ വൈകുന്നേരം നാലു മണി വരെയാണ് പരിശോധന

എൽ എ